ജപ്പാനിൽ ജാപ്പനീസ് ീപ്പ്രധാനമന്ത്രി ഷിൻസോ ആബേയുമായി കൂടിക്കാഴ്ച നടത്തി

ഖുറാനയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാജ്ഞലി

ഉറപ്പിച്ച് എറണാകുളം ജില്ല

ഫൈനലിൽ ഇന്ത്യാ ഇന്ന് പാക്കിസ്ഥാനെ നേരിടും

അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഐകൃത്തിനുവേണ്ടിയുള്ള മാരത്തോണിൽ പങ്കാളികളാകാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു

കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരും മത്സരങ്ങൾ കാണാൻ എത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

രാജ്യത്തെ എല്ലാ മേഖലകളിലും ഈ പാരമ്പര്യത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പുതുതലമുറ പുതുമയോടെ വരികയാണെന്നും ശ്രീ

കമ്പനികൾക്കും തൊഴിലാളികൾക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരം നൽകുന്ന സെൽഫ് ഫോർ സൊസൈറ്റി എന്ന പോർട്ടലിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻകി ബാത്തിൽ പരാമർശിച്ചു ഞാനല്ല നമ്മൾ എന്ന മുദ്രാവാകൃം ഓരോരുത്തർക്കും പ്രചോദനം നൽകുന്നതാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ പരിസ്ഥിതി ക്ര സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം പ്രകൃതിയ്ക്കിട്ട് ഇ്ണങ്ങിയുള്ള ജീവിത രീതി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഗോത്രവിഭാങ്ങളുടെ ജീവിത രീതിയും സമ്പന്നമായ ൃ പൂർമ്പര്യവും എല്ലാവർക്കും മാതൃകയാണെന്നും അദ്ദേഹീം പിറഞ്ഞു

സാങ്കേതികവിദ്യ ഇന്റർനെറ്റ് തുടങ്ങിയ മേഖലകളിലെ ഗവേഷണവും വികസന പ്രവർത്തനങ്ങളും യോജിച്ച് നടത്താമെന്ന തീരുമാനത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം യമാനഷിയിൽ ഷിൻസോ ആബേയുടെ വില്ലയിൽവച്ച് അദ്ദേഹവുമായി അനൌപചാരിക സംഭാഷണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തി വൈകുന്നേരം ഇരു നേതാക്കളും എക്സ്പ്രസ്സ് ട്രെയിൻ കെയ്ജിയിൽ ടോക്യോയിലേക്ക് മടങ്ങും

നരേന്ദ്രമോദി പങ്കെടുക്കും

ഛത്തീസ്ഗഡ് പ്രദേശ് കോൺഗ്രസ്സ് കമ്മിറ്റി അധ്യക്ഷൻ ഭൂപേഷ് ബാഖേൽ പട്ടാൻ മണ്ഡലത്തിൽ മത്സരിക്കും കോൺഗ്രസ്സ് ലെജിസ്തേറ്റർ പാർട്ടി നേതാവ് ടി എസ് സിംങ് ദിയോ അംബികാപൂറിൽ നിന്നും മുൻ കേന്ദ്രമന്ത്രി ചരൺദാസ് മഹന്ദ് ശക്തി മണ്ഡലത്തിലും മത്സരിക്കും

വടക്കൻ ബംഗ്ലാദേശിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാലാണ് മുന്നറിയിപ്പ് നൽകിയത്

ആളപായ്മോ പ്രിക്കുകളോ ഉള്ളതായി റിപ്പോർട്ടി ല്ല

സൈന്യം ശക്തമായി തിരിച്ചടിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ഇന്നലെ രാത്രി ബുദ്ഗാം ജില്ലയിൽ പോലീസ് ഉദ്യോഗസ്ഥനു നേരെ ഭീകരർ വെടിയുതിർത്തു പരിക്കേറ്റ അദ്ദേഹത്തെ ആശുപ ത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്

ഇന്നും നാളെയും ഖത്തർ സന്ദർശിക്കുന്ന ശ്രീമതി സുഷമ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കുവൈറ്റ് സന്ദർശിക്കും കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വോയിസ് ദ്വിരാഷ്ട്ര സന്ദർശന വേളയിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ക് മൊഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി കുവൈറ്റ് ഷൈക് തമീം ബിൻ ഹമാദ് അൽ താനി എന്നിവരുമായി ചർച്ച നടത്തും കൂടാതെ ദോഹയിലെ ഇന്ത്യൻ സമൂഹവുമായി ശ്രീമതി സുഷമസ്വരാജ് ആശയ വിനിമയം നടത്തും ഇരു ക്ക രാജ്യങ്ങളും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കൂന്ന് ചരിത്രപരവും വൈവിദ്ധ്യമാർന്നതുമായ പര്യസ്പ്പർബന്ധത്തെ നേതാക്കൾ വിലയിരുത്തും

കുവൈറ്റ് സന്ദർശന വേളയിൽ കുവൈറ്റ് വിദേശകാര്യമന്ത്രി കുവൈറ്റ് ഭരണാധികാരി തുടങ്ങിയവരുമായി ശ്രീമതി സുഷമ ഉഭയകക്ഷി ചർച്ച നടത്തും ഇന്ത്യയ്ക്കും കുവൈറ്റിനും വളരെ അടുത്ത ഉഭയകക്ഷി ബന്ധമാണ് ഉളളത്

ദീർഘനാളായി അസുഖബാധിതനായിരുന്ന മദൻലാൽ ഖുറാന ഇന്നലെ രാത്രിയാണ് അന്തരിച്ചത്

ഡൽഹിയുടെ മുഖഛായ മാറ്റുന്ന വികസനപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടര്യ് വഹിച്ചത് മദൻലാൽ ഖുറാനയായിരുന്നുവെന്ന് ഉപരാഷ്ട്രപ്പത്യ് എം

ജനപ്രീയനും കഠിനാദ്ധാനിയുമായ ഭരണ്ടാധികാരി ആയിരുന്നു മദൻലാൽ ഖുറാനയെന്ന് പ്രധാന്യമിന്ത് നരേന്ദ്രമോദി അനുസ്മരിച്ചു

അതിനിടെ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക് നാഥ് ബഹ്റ പോലീസിന് നിർദ്ദേശം നൽകി

തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മാണ ഉദ്ഘാടനം നിർവ്വഹിക്കുന്നു ൽദ്ദേഹം പാലക്കാട് ജില്ല യിലെ താണാവ് റോഡ് കാസർഗ്ഗോഡ് പള്ളിക്കര റെയിൽവെ ഓവർബ്രിഡ്ജ് എന്നിവയുടെ ് നീർമ്മാണോദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർപ്പഹിക്കും

എം ലൂടെ പിൻവലിക്കാവുന്ന തുക കുറച്ചുകൊണ്ടുള്ള എസ് ബി ഐ യുടെ തീരുമാനം ബുധനാഴ്ച പ്രാബല്യത്തിൽ വരും

ബി ഐ

ഇന്ത്യക്കുവേണ്ടി ഗുർജൻ സിംഗ് ചിങ്കലേസന കൻ ഗൂജാം ദിൽപ്രീത് സിംഗ് എന്നിവരാണ് ഗോൾ നേടിയത് മലേഷ്യയെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലൂടെ തോൽപ്പിച്ചാണ് പാക്കിസ്ഥാൻ ഫൈന്റ്ലിൽ കടന്നത്

കോഴിക്കോട് മൂന്നാം സ്ഥാനത്തും തിരുവനന്തപുരം നാലാം സ്ഥാനത്തുമാണ്